നിയന്ത്രണങ്ങൾ പാലിക്കാതിരിക്കുന്ന സ്ഥിതി വിഷമങ്ങൾ സൃഷ്ടിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

എസ് എൽ സി ഉൾപ്പെടെ എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു

് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പി

ബാനർജി വിടവാങ്ങി

ഇന്ന് പുലർച്ചെ ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് കുറ്റവാളികളെ തുക്കിലേറിയത്

വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ നിയമപരമായ സാധ്യതകളും പ്രതികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു വൃധശിക്ഷ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജി ഇന്നുള്ല ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നൂ തൃത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ജയിലായ തിഹാർ ജയിലിൽ ഇതാദ്യ്മായു്ണ് നാല് പ്രതികളെ ഒരുമിച്ച് തൂക്കിലേറ്റുന്നത്

പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതി മൂന്ന് വർഷത്തെ ശിക്ഷയ്ക്കു ശേഷം ജയിൽ മോചിതനാവുകയും ചെയ്തു നിർഭയയ്ക്കും രാജ്യത്തെ കോടിക്കണക്കിന് സ്ത്രീകൾക്കും നീതി ഉറപ്പാക്കിയ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിർഭയയുടെ അമ്മ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്ത്രീകളുടെ അഭിമാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് രാജ്യം അതീവ പ്രാധാന്യമാണ് നല്കുന്നതെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു സ്ത്രീകളുടെ ശക്തി എല്ലാ മേഖലകളിലും തിളങ്ങുകയാണ് സ്ത്രീകൾക്ക് സമത്വവും തുല്യ അവസരങ്ങളും നൽകുന്നതും വനിതാ ശാക്തീകരണത്തിന് പ്രധാന്യമുള്ളതുമായ രാഷ്ട്രത്തിനായി പ്രയത്നിക്കണമെന്നും ശ്രീ

ഇതിന്റെ അടിസ്ഥാനത്തിൽ കാസർകോഡ് വലിയതോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വൃക്തമാക്കി

ചിലയാളുകൾ നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ലയെന്ന സ്ഥിതി വിഷമങ്ങൾ സൃഷ്ടിക്കുന്നതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

എസ് എൽ

പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കന്ററി എന്നിവയും വിവിധ സർവകലാശാലാ പരീക്ഷകളും മാറ്റിവച്ചിട്ടുണ്ട്

മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് തീരുമാനമെടുത്തത്

ഗ്രൂപ്പ് ബി സി ഡി ജീവനക്കാർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജോലിക്ക് ഹാജരായാൽ മതി

കക്ഷികൾ കേസ് കാര്യങ്ങൾക്കായി എത്തേണ്ടതില്ല അഭിഭാഷകർ ചുമതലകൾ നിർവഹിക്കും ആലപ്പുഴ ജില്ലാ കോടതിയിൽ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി

ഭേദപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

കൊറോണ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡോക്ടർമാർ ആരോഗ്യപ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ നടത്തുന്ന സേവന്തിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് എല്ലാ ജനങ്ങളും നന്ദി അറിയിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൊറോണ വ്യാപനത്തിന്റെ നിലവിലെ ഘട്ടത്തിൽ സാമൂഹ്യ അകലം പാലിക്കേണ്ടത് അനിവാര്യമാണ് നിശ്ചയദാർഢ്യവും ക്ഷമയുമാണ് കൊറോണ വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗം വ്യാപാര സ്ഥലങ്ങൾ ജനക്കൂട്ടമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അനാവശ്യമായി സഞ്ചരിക്കുന്നത് ശരിയായ സമീപനമല്ലെന്നും അത് മറ്റുള്ളവരെ കൂടി അപകടത്തിലാക്കുമെന്നും ശ്രീ

ആരോഗ്യ പ്രവർത്തകർക്ക് മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് അത്യാവശ്യമല്ലാത്ത ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

രോഗികളെ പരിശോധിച്ചിരുന്ന് ഡോക്ടർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് എന്ന കാര്യം സ്ഥിതി ഗുരുതരമാക്കുന്നതായി രാജസ്ഥാൻ ആരോഗ്യമന്ത്രി ഡോ

വൈറസ് പടരാതിരിക്കാൻ നഗരത്തിലും ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലും നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു

എന്നാൽ സബർബൻ ട്രെയിൻ സർവീസുകളും സിറ്റി ബസ് സർവ്വീസുകളും പ്രവർത്തനം തുടരും

മാസ്കുകളുടെ നിർമാണത്തിലും വിതരണത്തിലും തടസങ്ങൾ നേരിടുന്നതിനാലാണ് തീരുമാനം

ഭോപ്പാലിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രാജിക്കാര്യം ശ്രീ

സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഇരിക്കവേയായിരുന്നു രാജി

ഇതോടെ മധ്യപ്രദേശിൽ ബി ജെ

കൊൽക്കത്തയിലാണ് അന്തരിച്ചത്

ഗ്രീസിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ജപ്പാനിലെ മത്സുഷിമ വ്യോമത്താവളത്തിലെത്തിച്ച ദീപശിഖ നാമമാത്രമായ ്ചടങ്ങുകളോടെയാണ് ജപ്പാൻ ഏറ്റുവാങ്ങിയത്

ഒളിമ്പിക് മത്സരങ്ങൾ ആരംഭിക്കാൻ ഇനിയും നാലരമാസം അവശേഷിക്കുന്നതിനാൽ മാറ്റിവയ്ക്കുന്നതിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് സമിതി ചെയർമാൻ തോമസ് ബാച്ച് പറഞ്ഞു